അനുബന്ധിച്ച് രാഷ്ട്രപതി ഇന്ന് വൈകിട്ട് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും

ക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അഞ്ചംഗ സംഘത്തെ നിയമിച്ചു

രാത്രി ഏഴ് മണി മുതൽ ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളും രാഷ്ട്രപതിയുടെയും പ്രസംഗം സംപ്രേഷണം ചെയ്യും

ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ്സുരക്ഷ ശക്തമാക്കി

ചുവപ്പുകോട്ടയിലെത്തുന്ന എല്ലാ ് അതിഥികളും ആഭ്യന്തര ആരോഗ്യമന്ത്രാലയങ്ങൾ പ്പുറ്റപ്പെടുവിച്ച കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ഡൽഹി പ്പോ്ലീസ് അഭ്യർത്ഥിച്ചു

ജി കമാൻഡോകളടക്കം ചുവപ്പുകോട്ടയ്ക്കു ചുറ്റും ബഹുതല സുരക്ഷാ വലയം തീർക്കും ബലൂണുകളും ഡ്രോണുകളും മറ്റും പറത്തുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്

വെല്ലുവിളികൾ ഏറ്റെടുത്ത് നവഭാരത സൃഷ്ടിക്കായി കേന്ദ്രസർക്കാർ നടത്തുന്ന പരിശ്രമങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട്

അഴിമതിയും ദാരിദ്ര്യവും ഭീകരതയും ജാതീയതയും ഇല്ലാത്ത വർഗ്ഗീയതയിൽ നിന്ന് വിമുക്തമായ പരിശുദ്ധമായ ഇന്തൃയ്ക്കായാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം

കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിബന്ധങ്ങളെ അവസരമാക്കി മാറ്റേണ്ടത് പുതിയ ഇന്ത്യ എന്ന സ്വപ്ന സാക്ഷാത്ക്കാരത്തിന് അനിവാര്യമാണെന്ന് നിതി ആയോഗ് ഉപാധ്യക്ഷൻ ഡോ

ഈ ലക്ഷ്യത്തോടെയാണ് സ്വകാര്യമ്മേഖ്ലയിലെ നിക്ഷേപം സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത്തെന്നും ് അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഓർഡനൻസ് ഫാക്ടറി ബോർഡിന്റെയും പുതിയ ഉപകരണങ്ങൾ പുറത്തിറക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ

സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്ന രാജ്യങ്ങൾക്ക് ആഗോളതലത്തിൽ മികച്ച പ്രതിച്ഛായ കൈവരുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഇന്തൃയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കാനാവില്ല തദ്ദേശീയമായി പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കേണ്ടതിന് പ്രാമുഖ്യം നൽകണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി

തിരുവനന്തപുരം മുക്കോല കോഴിക്ക്കോട് രാമനാട്ടുകര മലപ്പുറം സ്വദേശികളാണ് കോവിഡ് മൂല് മുരിച്ചത്

ഇന്നലെ രോഗം സ്ഥിരീകരിച്ച കൂടുതൽ പേരും തിരുവനന്തപുരത്താണ്

എസ് ഛാഹറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അപകട കാരണങ്ങളെക്കുറിച്ച് പഠിച്ച് അഞ്ച് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും പ്രത്യേക സംഘം ശുപാർശ നൽകും

എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നതാണ് പുതിയ നയത്തിന്റെ അടിസ്ഥാനമെന്ന് ശ്രീ

ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും താങ്ങാനാകുന്ന ചെലവിൽ ലഭ്യമാക്കാൻ പുതിയ നയത്തിലൂടെ കഴിയും സ്കൂൾ സംവിധാനത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികളെയും കൂടി വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കാൻ പുതിയ നയം ലക്ഷ്യമിടുന്നുണ്ട് നിലവിൽ മൂന്ന് കോടി വിദ്യാർത്ഥികളാണ് കലാലയ സംവിധാനത്തിനു കീഴിലുള്ളത് ഇത് രണ്ടിരട്ടി ആക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു നിലവിൽ നാലിൽ ഒരാളാണ് സ്കൂളിൽ നിന്ന് കലാലയത്തിലെത്തുന്നത്

ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നവീകരണം ഗവേഷണം എന്നിവയ്ക്ക് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഊന്നൽ നൽകുന്നുണ്ട് വിദ്യാപീഠ് വികാസ് മഞ്ച് ദേശീയ യുവ സഹകരണ സംഘം സാവിത്രി ഫുലെ സർവകലാശാല എന്നിവ ചേർന്ന് സംഘടിപ്പിച്ച വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

ഒരു മാസമായി തുടരുന്ന രാഷ്ട്രീയ പ്രതിസന്ധിക്കിടെയാണ് സമ്മേളനം

സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയ്ക്ക്കിട്ടുവരാൻ ബിജെപി തീരുമാനിച്ചിട്ടുണ്ട്

കോവിഡ് ബാധിച്ച് രോഗമുക്തി ന്ന്ടിയവരാണ് ഇവർ

ഇത്തരത്തിൽ വൈറസ് ബാധിക്കുന്നതായി ഒരു തെളിവും ലഭിച്ചിട്ടില്ലെന്നും ഭക്ഷണത്തെ ഭയക്കേണ്ട കാര്യമില്ലെന്നും സംഘടനാ പ്രതിനിധി മൈക് റയാൻ വ്യക്തമാക്കി

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഓരോരുത്തർക്കും സൌകര്യപ്രദമായ സ്ഥലത്തും സമയത്തും പരിപാടിയിൽ പങ്കെടുക്കാം പല ദിവസങ്ങളിലായും ഓടാം

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ആവിഷ്ക്കരിച്ച ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ ശക്തിപ്പെടുത്താനാണ് ഫ്രീഡം റൺ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് കായികമന്ത്രി പറഞ്ഞു

ഇരു രാജ്യങ്ങളും തമ്മിലുള്ളൂ സൌഹൃദം ഇന്ത്യൻ മഹാസമുദ്രം പോലെ ആഴമേറിയതാണ്ണെന്നും ഇത് എന്നും നിലനിൽക്കുമെന്നും ശ്രീ

സിക്കി റെഡ്ഡിക്കും ഫിസിയോ തെറാപ്പിസ്റ്റ് കിരണിനും കോവിഡ് ബാധ സ്ഥിരീകരിച്ചു എന്നാൽ ഇവർക്ക് രോഗലക്ഷണങ്ങളില്ല അണുനശീകരണം നടത്താൻ ബാഡ്മിന്റൺ അക്കാഡമി അടച്ചു